പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് അഭിസംബോധന ചെയ്യും

ന് രോഗവൃാപനം വർദ്ധിക്കുന്ന സാഹചരൃത്തിൽ കേരളത്തിൽ നിയന്ത്രണങ്ങൾ കർൾനമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

മൂന്നാം ബാച്ച് ഇന്ത്യയിലെത്തി

എസ് എല്ലിൽ ഇന്ന് ഹൈദരാബാദ് ബംഗളുരു എഫ്

പോരാട്ടം

മനുഷ്യരാശിക്ക് സാങ്കേതിക വിദ്യയിലൂടെ ഗുണമുണ്ടാക്കുന്ന നാലാം വൃപ്പസായ വിപ്തവത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സ്റ്സാരിക്കുക വിവിധ കമ്പനികളുടെ ചീഫ് എക്സിക്ട്ടുട്ടീവ് ഓഫീസർമാരുമായും ശ്രീ

ഇന്ത്യയിലൂല പ്രിഷ്ക്കരണങ്ങൾ സാങ്കേതിക വിദ്യയുടെ വർദ്ധിച്ചു ഉപ്യോഗം മറ്റ് കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് സമ്മേളന്റത്തിൽ സംസാരിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു കോവിക്ക്നെന്തര ലോകത്ത് ലോകസാമ്പത്തിക ഫോറത്തിന്റെ പുതിയ തുട്ക്കമിടൽ കൂടിയാണ് ദാവോസ് സമ്മേളനം

സി റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് മൂന്ന് സേനാ മേധാവിമാർ എന്നിവരും പങ്കെടുക്കും പ്രധാനമന്ത്രി എൻ

സി കേഡറ്റുകളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും സാംസ്ക്കാരിക പരിപാടികൾ വീക്ഷിക്കുകയും ചെയ്യും

കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ പ്രതിസന്ധിയെ നേരിടാനാകൂവെന്ന് മന്ത്രി പറഞ്ഞു കാലാവസ്ഥാ വൃതിയാന വിഷയത്തിൽ ആഗോള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു

നിയന്ത്രണങ്ങളിൽ അയവ് വന്നതും പൊതുവെ യുള്ള ജാഗ്രത കുറഞ്ഞതും കോവിഡ് വ്യാപനത്തിന് കാരണമാ ണെന്ന് യോഗം വിലയിരുത്തി

പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം ശാരീരിക അകലവും മാസ്കും നിർബന്ധമാക്കും

കണ്ടെയിന്റ്മെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കൂടുത്ത് ക്ർക്കശമാക്കും

സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉല്പാദിപ്പിച്ച അഞ്ച് ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ ഇന്ന് കൊളംബോയിലെത്തും വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായി മേഖലയിലെ മറ്റ് ഏഴ് രാജ്യങ്ങൾക്കും ഇന്ത്യ വാക്സിൻ നൽകുന്നുണ്ട് കഴിഞ്ഞ വർഷം സെപ്തംബറിൽ നടന്ന ഉഭയകക്ഷി ഉച്ചകോടിയിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെടുന്നത്

ഇതേ തുടർന്നാണ് ലോകം ഏറെ കാത്തിരുന്ന അന്വേഷണത്തിന് തുടക്കം കുറിക്കുക

രണ്ടാഴ്ചയായി ചൈനീസ് ശാസ്ത്രജ്ഞരുമായി വീഡിയോ കോളിലൂടെ സംഘം ചർച്ച നടത്തുകയാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വുഹാനിലെത്തിയ സംഘം മത്സ്യ മാർക്കറ്റിൽ നിന്നാണ് വൈറസ് മനുഷ്യരിലേക്ക് പടർന്നതെന്ന് വ്യിരുത്തിയിരുന്നു

ഹരിയാനയിലെ അംബാ്ല്യി്ലുള്ള ഇന്ത്യൻ വ്യോമസേനാ വ്യൂഹത്തിന് കൂടുതൽ കരുത്ത് പകരാൻ പുതിയ വിമാനങ്ങളുടെ വരവോടെ കഴിയും

കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടുന്ന സംവിധാനം പദ്ധതികളുടെ നടപ്പാക്കൽ സംബന്ധിച്ച വിലയിരുത്തൽ നടത്തി

പ്രധാനമന്ത്രിയുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന പ്രഗതി യോഗം ഒൻപത് പദ്ധതികളും ഒരു പരിപാടിയുമടക്കം പത്ത് അജണ്ടയാണ് ചർച്ച ചെയ്തത് അവലോകനം ചെയ്ത ഒൻപത് പദ്ധതികളിൽ മൂന്നെണ്ണം റെയിൽവേ മന്ത്രാലയത്തിന്റെയും മൂന്നെണ്ണം റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയത്തിന്റേതുമാണ് ഊർജ്ജ വിദേശകാരൃ മന്ത്രാലയത്തിന്റെയും വൃവസായ ആഭൃന്തര വാണിജ്യ പ്രോത്സാഹന വകുപ്പിന്റെയും ഓരോ പദ്ധതികളും ഇക്കൂട്ടത്തിലുണ്ട്

ഒഡിഷ കർണ്ണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് പഞ്ചാബ് ജാർഖണ്ഡ് ബിഹാർ തെലങ്കാന രാജസ്ഥാൻ ഗുജറാത്ത് പശ്ചിമ ബംഗാൾ ഹരിയാന ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് പ്രധാൻമന്ത്രി ഭാരതീയ ജൻ ഔഷധ്യി പ്പ്രിയോജനയുടെ പ്രവർത്തനവും ശ്രീ മോദി വിലയിരൂത്തി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് തടസം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണ്ടൂൻ പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു

ഓസ്റ്റിന്റെ സ്ഥാനലബ്ദിയിൽ ശ്രീ

ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാനുള്ള പ്രതിബദ്ധത ഇരുവരും ആവർത്തിച്ചു

മേഖലാതല രാജ്യാന്തര വിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ ഇരുരാജൃങ്ങൾക്കും കഴിയുമെന്ന് ശ്രീ

ഇന്തോ അമേരിക്കൻ ബന്ധം കൂടുതൽ ശക്തമായി മുന്നോട്ടുകൊണ്ടുപോകുമെന്ന് ശ്രീ

അടിസ്ഥാന സൌകരൃ വികസനത്തിലെ ക്യൂറ്റ്പ് പരിഹരിക്കാൻ ഉതകുന്ന സെൻട്രൽ വിസ്റ്റ പദ്ധതി ഇത്ത്ര്ത്തിലൊന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയ്ടിലെ പ്ണ്ഡിറ്റ് പന്ത് മാർഗിൽ ഭാരത് രത്ന പണ്ഡിറ്റ് ഗോവിദ്ദ് വീല്ലഭ് പന്തിന്റെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തവെയാണ് ക്രേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത് റെയ്സിന റോഡിൽ നിന്ന് പ്രതിമ മാറ്റി സ്ഥാപിച്ചിരുന്നു

ട്രാക്ടർ റാലിക്കിടെ ഡൽഹി പോലീസ് അങ്ങേയറ്റം സംയമനം പാലിച്ചെന്നും അക്രമികൾ ശിക്ഷിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു

മൻ കി ബാത്തിനായി ജനങ്ങൾ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കു വയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു

എല്ലിൽ ഇന്ന് ഹൈദരാബാദ് ബംഗളൂരൂ എഫ് സി പോരാട്ടം

ഇന്നലെ നടന്നു മീത്സരത്തിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനോട് ഗ്വോള്റ്റർഹിത സമനില പാലിച്ചിരുന്നു